ജമ്മുകശ്മീരിന്റെ പ്രത്യേക പദവി റദ്ദാക്കിയ ഇന്ത്യയുടെ തീരു മാനം ചർച്ച ചെയ്യാൻ ചേർന്ന ഐക്യരാഷ്ട്രസഭ രക്ഷാ കൌൺസി ലിൽ പാക്കിസ്ഥാന് തിരിച്ചടി ചൈന മാത്രമാണ് കൌൺസിലിൽ പാക്കിസ്ഥാനെ പിന്തുണച്ചത് യോഗത്തിൽ പങ്കെടുത്ത അഞ്ച് സ്ഥിരാംഗങ്ങളിൽ ബ്രിട്ടനും ഫ്രാൻസും റഷ്യയും അമേരിക്കയും ഉഭയകക്ഷി ചർച്ചയിലൂടെ പ്രശ്നം പരിഹരിക്കണമെന്ന് ആവശ്യ പ്പെട്ടു പത്ത് താല്ക്കാലിക അംഗങ്ങളും ഇന്ത്യയുടെ നിലപാടിനെ പിന്തുണച്ചു പാക്കിസ്ഥാൻ ആവശ്യപ്പെട്ട പ്രകാരമാണ് യു എൻ ആസ്ഥാനത്ത് അടച്ചിട്ട മുറിയിൽ പ്രത്യേക രക്ഷാകൌൺസിൽ യോഗം ചേർന്നത് കശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിച്ചത് തീർത്തും ഇന്ത്യ യുടെ ആഭ്യന്തര കാര്യമാണെന്ന് യോഗത്തിന് ശേഷം ഐക്യരാ ഷ്ട്രസഭയിലെ ഇന്ത്യൻ പ്രതിനിധി സെയ്ദ് അക്ബറുദ്ദീൻ മാധ്യമ ങ്ങളോട് പറഞ്ഞു കശ്മീരിലെ സ്ഥിതി യെക്കുറിച്ച് തെറ്റായ വിവ രങ്ങൾ ചിലർ പ്രചരിപ്പിക്കുകയാണെന്നും അത് യാഥാർത്ഥ്യങ്ങ ളിൽ നിന്ന് വളരെ അകലെയാണെന്നും അദ്ദേഹം പറഞ്ഞു എല്ലാ പ്രശ്നങ്ങളും സമാധാനപരമായി പരിഹരിക്കാൻ ചർച്ച തുടങ്ങു ന്നതിന് പാക്കിസ്ഥാൻ ഭീകരവാദം അവസാനിപ്പിക്കണമെന്നും അക്ബറുദ്ദീൻ ആവശ്യപ്പെട്ടു

സംസ്ഥാനത്ത് ഡോക്സി ഡേ പ്രചാരണ പരിപാടികൾക്ക് തുടക്കമായി പ്രളയജലവുമായി ബന്ധപ്പെട്ട എല്ലാവർക്കും എലി പ്പനിയുണ്ടാവാൻ സാധ്യതയുള്ളതിനാൽ പ്രതിരോധ ഗുളികയായ ട്ട് ഡോക്സിസൈക്സിൻ നൽകാൻ ആരോഗ്യവകുപ്പ് നടത്തുന്ന തീവ്രി യജ്ഞ പരിപാടിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം മന്ത്രി കെ

ഇന്ന് മുതൽ ആറ് ശനിയാഴ്ചകളിലാണ് ഡോക്സി ഡേ ആച രിക്കുന്നത്

പ്രളയബാധിത ജില്ലകളിലെ ആശുപത്രികൾ റിലീഫ് ക്യാമ്പുകൾ തെരഞ്ഞെടുക്കപ്പെട്ട പൊതു സ്ഥലങ്ങൾ എന്നിവിടങ്ങളിൽ പ്രത്യേകം ഡോക്സി ബൂത്തുകൾ സ്ഥാപിച്ച് ഡോക്സിസൈക്സിൻ ഗുളികകൾ സൌജന്യമായി വിത രണം ചെയ്യും

ഇന്ന് ചിങ്ങം ഒന്ന് മലയാളത്തിന്റെ പുതുവർഷാരംഭം വറുതിയുടെ കർക്കിടകനാളുകൾക്ക് വിടചൊല്ലിയാണ് മലയാളികൾ ചിങ്ങപ്പുലരിയെ വരവേറ്റത് സൂര്യൻ ചിങ്ങം രാശിയിലൂടെ സഞ്ചരിക്കുന്ന സമയമാണ് ചിങ്ങമാസം

കാർഷിക വിളവെടുപ്പിന്റെയും സമൃദ്ധിയുടെയും ഉൽസവനാളുകളാണ് വരാനിരിക്കുന്നത് കൊയ്തെടുത്ത നെല്ലുകൊണ്ട് പത്തായം നിറച്ചിരുന്ന പഴയ കാലത്തിന്റെ ഗൃഹാതുരതയാണ് മലയാളിക്ക് ചിങ്ങമാസം ചിങ്ങം പിറന്നതോൂടെ ഓണത്തെ വരവേൽക്കാൻ ഒരുക്കങ്ങളും തുടങ്ങി പ്രളയ ഭീഷണി ഒഴിഞ്ഞതിന്റെ ആശ്വാസത്തിലാണ് ഇത്തവണ ചിങ്ങമാസത്തെ വരവേൽ ക്കുന്നത് പ്രസിദ്ധമായ തിരൂർ വെറ്റിലയ്ക്ക് കേന്ദ്ര വാണിജ്യ മന്ത്രാലയം ഭൌമസൂചിക പദവി നൽകി മലപ്പുറം ജില്ലയിലെ തിരൂർ താനൂർ തിരൂരങ്ങാടി കുറ്റിപ്പുറം മലപ്പുറം വേങ്ങര പ്രദേശങ്ങളിൽ കൃഷി ചെയ്യുന്ന സവിശേഷതരം വെറ്റിലയാണ് തിരൂർ വെറ്റില എന്ന പേരിൽ അറിയപ്പെടുന്നത് ലങ്ക പാൻ എന്നറിയപ്പെടുന്ന കണ്ണി വെറ്റില ഉൾപ്പെടെ നിരവധി വെറ്റില ഇനങ്ങൾ ഇവിടെ കൃഷി ചെയ്യുന്നുണ്ട് കാർഷിക സർവ്വകലാശാലയുടെ ബൌദ്ധിക സ്വത്തവകാശ സെല്ലാണ് തിരൂർ വെറ്റിലക്ക് ഭൌമസൂചിക പദവിക്കായി ശ്രമങ്ങൾ നടത്തിയത് തിരൂർ വെറ്റിലയുടെ രാജ്യാന്തര മൂല്യം വർദ്ധിക്കാൻ ഈ പദവി പ്രയോജനപ്പെടും